പ്രതിപക്ഷത്തിന് ഒരു വിഷയവും ഉന്നയിക്കാനില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു

തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു

പുരുഷന്മാരുടെ ട്രിപ്പിൽ ജമ്പിൽ ഇന്ത്യയുടെ പ്രവീൺ ചിത്രവേലിന് വെങ്കലം

നരേന്ദ്രമോദി ആപ്പിലൂടെ ചത്ര ഗസിപൂർ ഹോഷങ്കാബാദ് പാലി നോർത്ത് ലോക്സഭ മണ്ഡലങ്ങളിലെ മുംബൈ ബി ജെ പി പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ശിവരാജ് സിംഗ് ചൌഹാൻ ഗവൺമെന്റ് മികച്ച പ്രവർത്തനം നടത്തിയതിലൂടെ മധ്യപ്രദേശ് മിക്വുറ്റ സംസ്ഥാനമായി അറിയപ്പെട്ട് തുടങ്ങിയെന്നും ശ്രീ മ്യോദ് പറഞ്ഞു ഗവൺമെന്റ എല്ലാവർക്കും ഒപ്പം എല്ലാവരുട്ടേയും വികസനം എന്ന മന്ത്രത്തിൽ വിശ്വസിക്കുന്നതായി പ്രധാന്യമന്ത്രി പറഞ്ഞു

സർദാർ പട്ടേലിന്റെ വലിയ ചിന്തകളും കാഴ്ചപ്പാടും പ്രയത്നങ്ങളും വരും തലമുറകളെ എപ്പോഴും പ്രചോദിപ്പിക്കുമെന്നും സ്റ്റാറ്റ്യൂ ഓഫ് യുണിറ്റിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു

ലഷ്കർ സുരക്ഷാസേനയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്ന് ഡി ജി പി ദിൽബാഗ് സിംഗ് പറഞ്ഞു

സി ബ്പി ഐ ഫയൽ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അഭയകേന്ദ്രത്തിന്റെ ഉടമ ബ്രജേഷ് താക്കൂർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എൻഫോഴ്സ്മെന്റ് ഉടൻ സമയൻസ് അയക്കും

മിൽക്മാൻ എന്ന നോവലിനാണ് പുരസ്കാരം ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്ദു ഐറിഷ് എഴുത്തുകാരിയാണ് അന്ന

ബൽഫാസ്റ്റിൽ ജനിച്ച അന്ന തെക്കൻ ഇംഗ്ല ിലാണ് ഇപ്പോൾ സ്ഥിരതാമസം

കൂടുതൽ വിവരങ്ങളുമായി കവിത വോയിസ് നാളെ ആരംഭിക്കുന്ന ര ുദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് ഉപരാഷ്ട്രപതി നേതൃത്വം നൽകും

ഉച്ചകോടിയോട് അനുബന്ധിച്ച് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ആഗോള വെല്ലുവിളികൾ നേരിടാൻ ആഗോള പങ്കാളികൾ എന്നതാണ് ഈ വർഷത്തെ ഏഷ്യ യൂറോപ്പ് ഉച്ചകോടിയുട്ടി പ്രമേയം

ബൽജിയം രാജാവുമായി ഉപരാഷ്ട്രപ്പതി ഉഭയകക്ഷി ചർച്ച നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മിഷണർ ഒ പി റാവത്ത് അയസ്വാളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി

ഇതനുസരിച്ച് മാനവശേഷി വികസനത്തിനും വിന്യാസത്തിനും സ്ഥകാര്യ പങ്കാളിക്ക് നിക്ഷേപം നടത്താം

സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രിംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടു ് അതിനിടെ നിലയ്ക്കലിൽ ഇന്ന് വലിയ തോതിൽ പ്രതിഷേധ സമരം ഉ ായി

തീർത്ഥാടകർക്ക് നിർോധനാജ്ഞ ബാധകമല്ല

മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം കൂടുതൽ വിവരങ്ങളുമായി കവിത വോയിസ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ളാ ഒരുക്കങ്ങൾ സയമബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് യോഗത്തിന് ശേഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

സ്ത്രീപ്രവേശന വിഷയത്തിൽ സുപ്രിംകോടതി വിധി നടപ്പാക്കാതെ ഗവൺമെന്റിന് മറ്റ് മാർഗ്ഗമില്ല കോടതി വിധി മൂലം ഉ വായ വിശ്വാസികളുടെ വികാരത്തെ ഗവൺമെന്റ് മാനിക്കുക തന്നെ ചെയ്യും

പ്രശ്നം പരിഹരിക്കുന്നതിന് തന്ത്രിമാരുമായും രാജകുടുംബവുമായും എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു അനുരഞ്ജനത്തിന്റെ വഴിയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമു ാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാധ്യമപ്രവർത്തകരെ കൈയ്യേറ്റം ചെയ്തവർക്കെതിരെ കേസ് ്രജിസ്റ്റർ ചെയ്തിട്ടു ന്നും അവരെ ഉടൻ പിടികൂടുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹറ അറിയ്യിച്ചു മ്മേഖലയിൽ ക്രമസമാധാനം നില നിർത്തുന്നതിന് എല്ലാ നടപ്പടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറ ഞ്ഞു

ക്യൂബയ്ക്കാണ് ഈ ഇനത്തിൽ സ്വർണ്ണം നൈജീരിയൻ താരത്തിനാണ് വെള്ളി മെഡൽ

റഷ്യ ഒന്നാം സ്ഥാനത്തും ചൈന ര ാമതും ജപ്പാൻ മൂന്നാം സ്ഥാനത്തും തുടരുന്നു

ഇന്നും നാളെയും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് പ്രവാസി മലയാളികളുടെ സഹകരണം തേടുകയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം അബുദാബിയിലെ വൃവസായ പ്രമുഖരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും

കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി മുംബൈയിൽ അറിയിച്ചതാണിത്

തീർത്ഥാടനത്തിന് വളരെ മുമ്പ് സൌകര്യം ഏർപ്പെടുത്താനാണ് നടപടിക്രമങ്ങൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

ഇതിനായി ഇവർക്ക് വിദഗ്ധരുടെ പിന്തുണ ലഭ്യമാക്കും പരമ്പരാഗത ചികിത്സയ്ക്ക് മികവുറ്റ തൊഴിൽ സൌകര്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മേഘാലയ ആരോഗൃമന്ത്രി അൽഹേക് പറഞ്ഞു